കോവിഡ് പ്രതീരോധ കുത്തിവെയ്പ് നാളെ മുതൽ

കോവിഡ് ബാധിച്ച് വീട്ടിൽ നിരീക്ഷണത്തിൽ ന് കഴിയുന്നവർക്ക് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം

റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലരിനെ നേരിടും

പ്രധാനമന്ത്രി തുടർച്ചയായി അവലോകനം ചെയ്ത് വരികയാണ് മുഖ്യമന്ത്രിമാർ വാക്സിൻ നിർമ്മാതാക്കൾ സംസ്ഥാന ഓക്സിജൻ നിർമ്മാതാക്കൾ ഫാർമസ്യൂട്ടിക്കൽ വൃവസായ പ്രമുഖർ തുടങ്ങിയവരുമായി ശ്രീ നരേന്ദ്രമോദി കൂടുക്കാഴ്ചകൾ നടത്തിയിരുന്നു

കോവിഡ് പോർട്ടലിന് സാങ്കേതിക തടസ്സങ്ങൾ ഒന്നും ഇല്ലെന്ന് സർക്കാർ അറിയിച്ചു

ലക്ഷണങ്ങളില്ലാത്ത കോവിഡ് രോഗികൾ വീട്ടിൽ കർശന നിരീക്ഷണത്തിൽ കഴിഞ്ഞാൽ മതിയാകും വീട്ടിലെ മറ്റുള്ളവർക്ക് രോഗം പിടിപെടാതിരിക്കാനായി ഇവർ മുറിക്കുള്ളിൽ തന്നെ കഴിയണമെന്ന് നിർദേശത്തിൽ പറയുന്നു

ന്യൂസ്ഡെസ്ക് ആകാശവാണി

എറണാകുളത്തും കോഴിക്കോടുമാണ് കൂടുതൽ രോഗബാധിതരുള്ളത്

മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഡൽഹി തുടങ്ങിയവക്ക് പുറമേ ഹരിയാന തെലങ്കാന സംസ്ഥാനങ്ങളിലും ഇനി മുതൽ ഓക്സിജൻ എക്സ്പ്രസിന്റെ സേവനം ലഭ്യമാകും

ജർമ്മനിയിൽ നിന്നും എയർ ഇന്ത്യ വിമാനവും ഓക്സിജൻ കോൺസെൻട്രേറ്റുകൾ ഡൽഹിയിലെത്തിച്ചിട്ടുണ്ട്

നിലവിൽ വാരാന്ത്യങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണത്തിന് സമാനമായ ക്രമീകരണങ്ങളാവും ഈ ദിനങ്ങളിലുണ്ടാവുക ഓരോ വൃക്തിയും സ്വയം ലോക്ക്ഡൌണിലേക്ക് പോകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

കോവിഡ് സാഹചര്യത്തിൽ കൂടുതൽ രണ്ടു വോട്ടെണ്ണൽ കേന്ദ്രങ്ങളും സൌകര്യങ്ങളും ഏർപ്പെടുത്തിയതായി മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർ ടീക്കാറാം മീണ അറിയിച്ചു

കോവിഡ് ബാധിച്ച് ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം

വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്ര മോദി കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി ഭരണഘടന നിയമവൃവസ്ഥകളുടെ പരിണാമത്തെ ആഴത്തിൽ സ്വാധീനിച്ച വൃക്തിയായിരുന്നു സൊറാബ്ജിയെന്ന് രാഷ്ട്രപതി ട്വിറ്ററിൽ കുറിച്ചു

ആൾ ഇന്ത്യൂട്ട്റേഡിയോയുടെ ന്യൂസ് സർവ്വീസ് ഡിവിഷനിലും ഡിഡി ന്യൂസിലും പ്രസ്സ് ഇൻഫർമേഷൻ ബ്യൂറോയിലും ഇൻഫർമേഷൻ ആന്റ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ ബ്യൂറോ ഓഫ് ഔട്ട് റീച്ച് ആന്റ് കമ്മ്യൂണിക്കേഷനിലും പ്രവർത്തിച്ചിട്ടുണ്ട്

ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം

പ്രിൻസിപ്പൽ സെക്രട്ടറി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ജസ്റ്റിസ്സുമാരായ ആർ

ഇന്നലത്തെ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരിൽ ഡൽഹി ക്യാപിറ്റൽസ് വിജയിച്ചു

ഡൽഹി ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഐആർഡിഎഐ പുതുക്കിയ മാർഗ്ഗരേഖ പുറപ്പെടുവിച്ചത്